നിയമ നടപടിയിൽ സഹകരണം കുറ്റവാളികളെ നേരത്തെ തിരിച്ചയ ക്കൽ സ്വന്തം രാജ്യത്ത് പ്രവേശനം നിഷേധിക്കൽ തുടങ്ങിയ നിർദ്ദേശങ്ങ ളാണ് സാമ്പത്തിക കുറ്റവാളികൾക്കെതിരെ സ്വീകരിക്കാൻ ഇന്ത്യ മുന്നോട്ടു വെച്ചത് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസി ഡന്റ് ഡൊണാൾഡ് ട്രംപ് ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബേ എന്നീ നേതാക്കളുമായും ചൈനീസ് പ്രസിഡന്റ് ഷീജിൻ പിങ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുട്ടിൻ എന്നിവരുമായും വെവ്വേറെ ത്രിതല കൂടിക്കാഴ്ച നട ത്തി ഇൻഡോ പസഫിക് മേഖലയിൽ ചൈന തന്ത്രപരമായ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ട്രംപുമായും ഷിൻസോ ആബേയുമായും നടത്തിയ കൂടിക്കാഴ്ചക്ക് പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു ഈ രാജ്യങ്ങളു മായി ഇന്ത്യ ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി പിന്നീട് അറിയിച്ചു

നേരത്തെ ചൈനീസ് പ്രസിഡന്റുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പരസ്പര വിശ്വാസവും സൌഹൃ ദവും മെച്ചപ്പെടുത്തുന്ന കാര്യമാണ് ഇരുനേതാക്കളും ചർച്ച ചെയ്തത്

കർഷകരുടെ ഉത്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട വില നൽകുമെന്നും ബോണസും വർദ്ധിപ്പിച്ച താങ്ങുവിലയും ലഭ്യമാക്കുമെന്നും പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആ വാഗ്ദാനങ്ങളിൽ നിന്ന് പുറകോട്ട് പ്രോയതായി അദ്ദേഹം ആരോപിച്ചു ഡൽഹിയിൽ അഖിലേന്ത്യാ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭി മുഖ്യത്തിൽ ഇരുനൂറിലേറെ സംഘടനകൾ പങ്കെടുത്ത കർഷകറാലിയെ അഭി സംബോധന ചെയ്യുകയായിരുന്നു രാഹുൽഗാന്ധി

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെ പ്രതിപക്ഷ നേതാക്കൾ റാലിയിൽ പങ്കെടുത്തു കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം ചേരണമെന്നുൾപ്പെട ആവശൃങ്ങൾ ഉന്നയിച്ചായിരുന്നു റാലി അതേസമയം കർഷകരെ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും തെറ്റിദ്ധരി പ്പിക്കുകയാണെന്ന് ബി

പി കുറ്റപ്പെടുത്തി എഴുപത് വർഷം കർഷകരുടെ പ്രശ്നങ്ങളോട് പുറംതിരിഞ്ഞുനിന്നവരെ കർഷകരെ പിന്തുണയ്ക്കില്ലെന്നും നരേന്ദ്രമോദിക്കൊപ്പം ചേരാൻ കർഷകർ തീരുമാനിച്ചിരിക്കുകയാണെന്നും ബി

പി വക്താവ് സംപിക് പത്ര ന്യൂഡൽഹിയിൽ പറഞ്ഞു രുവെട്ടിരി കേരളബാങ്ക് വരുന്നതോടെ ബാങ്കിംഗ് മേഖലയിൽ വൻ കുതിച്ചുചാട്ട മുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നമ്മുടെ സമൂഹ ത്തിന്റെ ആവശ്യങ്ങൾ കൃത്യമായി നിറവേറ്റാനാകുംവിധം കേരളബാങ്ക് വള രുമ്പോൾ മറ്റു ബാങ്കുകളും ആ വഴിക്ക് വരാൻ നിർബന്ധിതരാകുമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് മൺവിള അഗ്രികൾച്ചറൽ കോ ഓ പ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്വയംഭരണ പദവി പ്രഖ്യാ പനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഓഖി ദുരന്തം അനുസ്മരണവും സുരക്ഷാ ഉപകരണങ്ങളുടെ വിതര ണവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

മത്സ്യത്തൊഴിലാളികൾക്ക് നാവിക് ഉപകർണങ്ങൾ ചടങ്ങിൽ മുഖ്യ മന്ത്രി വിതരണം ചെയ്തു

ചൊവ്വാഴ്ച അർദ്ധരാത്രി വരെ ഇലവുങ്കൽ മുതൽ സന്നിധാനം വരെ ജനങ്ങൾ നിയമവി രുദ്ധമായി സംഘം ചേരുന്നതും പ്രകടനം പൊതുയോഗം വഴിതടയൽ എന്നിവ നടത്തുന്നതും നിരോധിച്ചിട്ടുണ്ട് തീർത്ഥാടകർക്ക് സമാധാനപരമായി ദർശനം നടത്തുന്നതിനും വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതിനും കൂട്ടമായി എത്തുന്നതിനും തടസ്സമില്ല രുമ്പ്പെട്ടിര മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിൽ വിവിധ ഗവൺമെന്റ് വകുപ്പുകൾ ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങൾ വിലയി രുത്താൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ഇന്ന് രാവിലെ സന്നിധാനത്ത് യോഗം ചേരും വിവിധ വകുപ്പ് മേധാവികൾ ദേവസം ബോർഡ് പ്രസിഡന്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും

പിയും സി

എമ്മും ഒത്തുകളിക്കു കയാണെന്ന് കെ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആരോപിച്ചു ശബരിമല സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറ്റാൻ ബി

പി തീരുമാ നിച്ചതിന് കാരണമിതാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമ പ്രവർത്തക രോട് പറഞ്ഞു ശബരിമലയിലെ അന്നദാനം സംഘപരിവാർ സംഘടനയായ സേവാഭാരതിക്ക് നൽകിയതിന് പിന്നിലും ഒത്തുകളിയാണെന്ന് മുല്ലപ്പള്ളി പറഞ്ഞു

പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധ രൻപിള്ള പറഞ്ഞു കോഴിക്കോട്ട് ബി

പി സംസ്ഥാന നേതൃയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമലയിലെ നിയന്ത്രണങ്ങളിൽ നിന്ന് പിൻമാറേണ്ടിവന്നത് ഗവൺമെന്റിനാണെന്നും പാർട്ടി ശക്തമായി തന്നെ സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രുവെട്ടിര പാചകവാതക വിലയിൽ എണ്ണക്കമ്പനികൾ കുറവ് വരുത്തി

അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറഞ്ഞതും ഡോളറിനെതിരെ രൂപയുടെ മൂല്യം മെച്ചപ്പെട്ടതു മാണ് വില കുറയാൻ കാരണമെന്ന് ഇന്ത്യൻ ഒായിൽ കോർപ്പറേഷൻ ന്യൂഡൽഹിയിൽ അറിയിച്ചു

എയ്ഡ്സിനെ കുറിച്ച് ബോധവാനാണ് എന്നതിന്റെ സൂചനയായി ഇന്നേദിവസം ചുവന്ന റിബൺ അണിയും എച്ച്

വി ബാധിതരാണോ എന്നറിയാൻ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം രാജ്യത്ത് ഗവൺമെന്റിന്റെയും സന്നദ്ധ സംഘടനകളുടെയും ആഭി മുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്

വി ബാധിതരുടെ എണ്ണം കുറയുന്നതായാണ് എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ കണക്കുകൾ കാണിക്കുന്നത്

കെ ശൈലജ നിർവഹിക്കും കഴി ഞ്ഞവർഷം എച്ച്

വി സേവനരംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കേന്ദ്രങ്ങൾക്കും കോളജുകളിൽ പ്രവർത്തിക്കുന്ന മികച്ച റെഡ് റിബൺ ക്ലബിനും അവാർഡുകൾ മന്ത്രി വിതരണം ചെയ്യും

ഒരു ലക്ഷത്തോളം ആളുകളെയാണ് ഉദ്ഘാടന ചടങ്ങിലേക്ക് കിയാൽ പ്രതീക്ഷിക്കുന്നത് അതിനിടെ വിമാനത്താവളത്തിലെ എയർ ട്രാ ഫിക് സർവീസസ് കോംപ്ലക്സ് ഇന്ന് വിമാനത്താവള അതോറിറ്റിക്ക് കൈ മാറും

അടുത്തമാസം കൂടുതൽ വിമാ നക്കമ്പനികൾ സർവീസ് ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രുട്ട്ട്ട്ട്ട്ട്ട്ട്ട ബന്ദിപ്പൂർ വഴി രാത്രിയാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ട് മറുപടി നൽകാൻ കേരളത്തിന് സുപ്രീംകോടതി രണ്ടാഴ്ച സമയം നൽകി പ്രശ്ന പരിഹാരത്തിനായി ബന്ദിപ്പൂർ മേഖലയിൽ മേൽപ്പാലം നിർമ്മിക്കാൻ പണം മുടക്കാൻ കേരളം തീരുമാനിച്ചിട്ടുണ്ട്

ഇക്കാര്യം ഗവൺമെന്റ് സുപ്രീംകോ ടതിയെ അറിയിക്കും

അയൽക്കൂട്ടങ്ങളെ ശക്തിപ്പെടുത്തി കുടുംബശ്രീ കൂടുതൽ വിപുലവും സമ ട ഗ്രവുമാക്കുന്നതിന് പ്രവർത്തന പദ്ധതികളുമായാണ് കുടുംബശ്രീ സ്കൂളിന്റെ രണ്ടാംഘട്ടം ആരംഭിക്കുന്നത് ഇതിന്റെ ഭാഗമായി കുടുംബശ്രീ അംഗങ്ങൾക്ക് വിവിധ വിഷയങ്ങളിൽ സമഗ്ര പരിശീലനം നൽകും ആറ് വ്യത്യസ്ത വിഷ യങ്ങളെക്കുറിച്ച് ആറാഴ്ചകളിലായാണ് പഠന ക്ലാസ് സംഘടിപ്പിക്കുന്നത് രുട്ടിട്ട്ട്ട്ട്ട്ട്ട കോഴിക്കോട് ജില്ലയിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങൾക്കും നിപ മുൻകരുതൽ സ്വീകരിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ജയശ്രീ അടിയന്തിര നിർദ്ദേശം നൽകി ഗവൺമെന്റിൽ നിന്നും ആരോഗ്യവ കുപ്പ് ഡയറക്ടറേറ്റിൽ നിന്നും ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി കടുത്ത ശ്വാസകോശ സംബന്ധമായ രോഗമുള്ളവർക്കും മസ്തിഷ്ക ജൂരം ബാധിച്ചവർക്കും പ്രത്യേക ചികിത്സ നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്

തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ തിരുവനന്തപുരത്തെ ചെങ്കള്ളൂർ ക്ഷേത്രത്തിലെ ദാക്ഷായണി എന്ന ആനക്കാണ് ഏറ്റവും പ്രായം കൂടുതൽ

രുട്ട്ട്ട്ട്ട്ട്ട്ട്ട നാളികേരിവികസന ബോർഡിന്റെ കേര സുരക്ഷ ഇൻഷൂറൻസ് പദ്ധ തിപ്രകാരം തെങ്ങുകയറ്റക്കാർക്ക് രണ്ടുലക്ഷം രൂപയുടെ ഇൻഷൂറൻസ് പദ്ധ തിക്ക് തുടക്കമായി നാളികേര വികസന ബോർഡിന്റെ ചങ്ങാതിക്കൂട്ടം പരി ശീലനമോ നീര ടെക്നീഷ്യൻ പരിശീലനമോ വിജയകരമായി പൂർത്തിയാ ക്കിയവർക്ക് ആദ്യവർഷം ഇൻഷൂറൻസ് തികച്ചും സൌജന്യമായിരിക്കുമെന്ന് നാളികേര വികസന ബോർഡ് കൊച്ചിയിൽ അറിയിച്ചു

സി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പൂനെ സിറ്റി എഫ് സിയെ തോൽപ്പിച്ചു

സി കേരള ചർച്ചിൽ ബ്രദേഴ്സ് ഗോവ മത്സരം സമനിലയിൽ പിരിഞ്ഞു ഇരു ടീമു കളും ഓരോ ഗോൾ നേടി

ആർച്ചറി പുരുഷ വനിതാ വിഭാഗം മത്സരങ്ങൾ ഇന്നും നാളെയും പുൽപ്പള്ളി പഴശ്ശിരാജാ കോളജിലും ബോൾ ബാഡ്മിന്റൺ പുരുഷ വിഭാഗം ചിറ്റൂർ ഗവൺമെന്റ് കോളജിലും കബഡി പുരുഷ വിഭാഗം പൊന്നാനി എം

എസ് കോളജിലും നടക്കും